ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള അന്തിമഘട്ടത്തിലാണ്

കരിപ്പൂരിനെ ഹജ്ജ് എംബാർക്കേഷൻ സെന്റർ ആയി മാറ്റണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യന്ത്രി നൽകിയ വിശദീകരണത്തിന്റെ വെളിച്ചത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി

മേഴ്സിക്കുട്ടി അമ്മ

നിലവിലെ തോട്ടണ്ടി പ്രശ്നം പരിഹരിക്കാൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ നടപടി സ്വീകരിക്കും പൂട്ടി കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ തുറക്കാൻ നടപടികൾ എടുത്തു വരുന്നതായി അറിയിച്ച മന്ത്രി വ്യവസായികൾക്ക് പലിശയിളവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമെന്നും പറഞ്ഞു